നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ

ങ്ങളും കീഴടക്കിയ ആദ്യ ഇന്ത്യാക്കാരനെന്ന നേട്ടം സത്യറപ് സിദ്ധാന്തയ്ക്ക്

ഗാന്ധി നഗറിൽ നടക്കുന്ന ആഗോള വ്യാപാര മേള പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

മൂന്നു ദിവസത്തെ മേളയിൽ വ്യാപാര വാണിജ്യരംഗത്തെ സാധ്യതകളും നേട്ടങ്ങളും അവതരിപ്പിക്കും പുതുതായി നിർമ്മിച്ച സർദാർ വല്പഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആന്റ് റിസർച്ച് ശ്രീ

സബർമതി നദി മുഖത്ത് സംഘടിപ്പിക്കുന്ന അഹമ്മദാബാദ് വിപണന മേള പ്രധാ നമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ഗ്ലാന്ധി നഗറിലെ മഹാത്മാ മന്ദിറിൽ നാളെ വൈബ്രന്റ് ഗുജറാത്ത് ആ്ഗോള ഉച്ചകോടി പ്രധാന മന്ത്രി ഉദ്ഘാടനം ചെയ്യും

നവഭാരതം രൂപ്പപ്പെടുത്താൻ യുവജനങ്ങളുടെ കൂട്ടായ്മ എന്നതാണ് ഉച്ചകോടിയുടെ മുഖ്യ പ്രമേയം

തുടർന്ന് മുംബൈയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ദേശീയ സിനിമാ മ്യൂസിയ ത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യും

കുംഭമേളയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിലും അറെയിൽ മേഖലയിലെ പർമത് നികേതനിൽ സംഘടിപ്പിക്കുന്ന വിശ്വ ശാന്തി യജ്ഞത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും

രണ്ടു പേരെയും സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിക്കാനുള്ള ശുപാർശ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിച്ചു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീംകോടതി കൊളീജിയമാണ് ശുപാർശ നൽകിയത്

ഡൽഹി ഹൈക്കോടതി ജഡ്ജിയാണ് സഞ്ജീവ് ഖന്ന

സംഭവത്തിൽ ഇന്നലെ പാക് ഹൈക്കമാൻഡിലെ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ചതായി വിദേശകാരൃ മന്ത്രാലയം വൃക്തമാക്കി അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പാക്സേന നടത്തുന്ന തുടർച്ചയായ വെടി നിർത്തൽ ലംഘനങ്ങളിലും ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് പാക്കി സ്ഥാൻ നൽകുന്ന പിന്തുണയേയും ഇന്ത്യ ശക്തമായി അപലപിച്ചു

പ്രവാസി ഭാരതീയരിലെ പുതിയ തലമുറയ്ക്ക് പ്രാധാന്യം നൽകി കൊണ്ടാണ് ഈ വർഷത്തെ ആഘോഷ പരിപാടികളെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ലക്നൌവിൽ പറഞ്ഞു വാരണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസി ദിവസ് ഉദ്ഘാടനം ചെയ്യും

ജെ

എത്രയും വേഗം സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു

സിലബസിൽ കുറവ് വരുന്നതോടെ വിദ്യാർത്മികൾക്ക് കായികയിനങ്ങളിലും നൈപുണ്യ വികസന ക്ലാസ്ുകളിലും പങ്കെടുക്കാനുള്ള സമയം അധികം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനത്തിലൂടെയും ആനുഭവ സമ്പത്തുകളിലുടെയും വിദ്യാഭ്യാസത്തിന്റെ മൂല്യം മനസിലാക്കികൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് ശ്രീ

തിരുവനന്തപുരത്ത് മന്ത്രി ഇ

ജയരാജനാണ് ചർച്ച നടത്തുന്നത്

നിയസഭാ സ്പീക്കർ പി

ഗൾഫ് മേഖല യിലെ ലോക കേരള സഭാംഗങ്ങളാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

എസ് ആർ ടി

തിരുവനന്തപുരത്ത് മന്ത്രി എ കെ ശശീന്ദ്രനുമായി സമരസമിതി നേതാ ക്കൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം മാനേജിംഗ് ഡയറ ക്ടർ ടോമിൻ തച്ചങ്കരിയും ചർച്ചയിൽ പങ്കെടുത്തു സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളിൽ അത്രുഭാവപൂർവ്വമായ സമീപനം കൈകൊണ്ടതിനാലാണ് പണ്ഡിമുടിക്ക് പിൻവലിക്കുന്നതെന്ന് സമരസമിത നേതാക്കൾ വ്യക്തമാക്കി സ്മര്ം നടത്തുന്നത് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു

ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നല്കി വരികയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കായി സൈബർ ലീഗൽ ഹാന്റ്ബുക്ക് പ്രകാശനം ചെയ്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഡി

വോയ്സ് ബ്രിട്ടൺ യൂറോപ്യൻ യൂണിയൻ വിടുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് അവതരിപ്പിച്ച ബ്രക്സിറ്റ് കരാർ പാർലമെന്റ് തള്ളിയ തിനെ തുടർന്നാണ് പ്രധാനമന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടു വന്നത് പ്രതിപക്ഷ ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബി നാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്

ബ്രിക്സിറ്റ് കരാറിൽ മാറ്റം വേണമെന്ന് ആഗ്രഹി ക്കുന്ന എം പിമാർ ലേബർ പാർട്ടി അധികാരത്തിൽ എത്തുന്നതിനെ തടയുകയായിരുന്നു അവിശ്വാസ പ്രമേയം അതിജീവിച്ചതിനെ തുടർന്ന് മാറ്റങ്ങളോടെ പുതിയ കരാർ പ്രധാനമന്ത്രി തെരേസാ മേ അവതരിപ്പിക്കും

കഴിഞ്ഞ വർഷം വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ പിക്കോ ദി ഒറിസാബയും സത്യറപ് കീഴടക്കിയിരുന്നു തെക്കൻ കൊൽക്കത്തയിലെ ഹരിദേവ്പൂർ സ്വദേശിയാണ് സത്യറപ് സിദ്ധാന്ത

ശ്രീകാന്തും സൈനാ നെഹ്വാളും പി കശ്യപും ഇന്ന് പ്രീ ക്വാർട്ടറിൽ കളിക്കാനിറങ്ങും

ഷൂട്ടിങ്ങിൽ ഇന്നലെ പിറന്ന നാല് സ്വർണ മെഡലുകൾ ഹരിയാന പഞ്ചാബ് തമിഴ്നാട് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ വീതിച്ചു

എസ് എൽ

ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് വ്യോമയാന വൃവസായ മേഖലയിൽ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വർഷംതോറും വ്യോമയാന ഉച്ചക്കോടി സംഘടിപ്പിക്കണ മെന്നും മഹാരാഷ്ട്ര സ്ഥിരം വേദിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു